ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒൻപത് ദിവസം മാത്രം ശേഷിക്കെ രാജൃത്ത് പ്രചരണം ഉച്ചസ്ഥായിയിൽ നാലാം ഘട്ട വിജ്ഞാപനം ഇന്നിറങ്ങും കോൺഗ്രസ്സിന്റെ പ്രകടന പത്രിക ഇന്ന്

രാഹുൽ ഗാന്ധി നാളെ കേരളത്തിൽ ബിജെപി ദേശീയ നേതാക്കളും ക്രേളത്തിലേക്ക് സംസ്ഥാനത്ത് നാമനിർദ്ദേൾ പത്രിക സമർപ്പിക്കാനുള്ള ന് കാലാവധി മറ്റന്നാൾ അവസാനിക്കും

സംസ്ഥാനത്ത് ലോഡ് ഷെഡ്സിങ് അടക്കമുള്ള വൈദ്യുതിനിയന്ത്രണം ഉണ്ടാവില്ലെന്ന് കെ എസ്

ബി ഇന്ന് ലോക ഓട്ടിസം ബോധവൽക്കരണ ദിനം

രാഹുലിന്റെ പ്രചരണത്തിനായി മുതിർന്ന നേതാക്കളും ജില്ലയിലെത്തും അതേസമയം എൻ

എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി നാളെ നാമനിർദ്ദേശപത്രിക സമർപ്പിക്കും

രാഹുലിന്റെ വരവിനു മുന്നോടിയായി എസ്

ജി സംഘം വയനാട്ടിൽ സുരക്ഷാപരിശോധനകൾ നടത്തി

എഫ് സ്ഥാനാർത്ഥി പി

കൽപ്പറ്റയിൽ നടക്കുന്ന പരിപാടിയിൽ പാർട്ടി ജനറൽ സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പിങ്കെടുക്കുന്നു

കോഴിക്കോട്ടെ യു ഡി എഫ് സ്ഥാനാർഥി എം കെ രാഘവന്റെ തെരഞ്ഞെടുപ്പ് പര്യടനപരിപാടിക്കായി കൊടുവള്ളിയിൽ എത്തിയപ്പോഴാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്

തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ്ക്കളക്ടർ അനുപമ മുൻപാകെ ഇന്ന് രാവിലെയാണ് അദ്ദേഹം പത്രിക സമർപ്പിച്ചത്

കെ സേനാപതി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തൃശൂർ നിയോജകമണ്ഡലം പൊതു നിരീക്ഷകനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിച്ച പി കെ സേനാപതി നാളെ ജില്ലാ ആസ്ഥാനത്ത് എത്തിച്ചേരും ഒഡീഷ്യ റവന്യൂ ബോർഡ് സെക്രട്ടറി ആണ് സേനാപതി

ഡി

വരണാധികാരിയായ ജില്ലാ കളക്ടർ എച്ച് ദിനേശനു മുമ്പാകെയാണ് പത്രിക നൽകിയത്

വൈദ്യുതി ഇൻട്രോ സംസ്ഥാനത്ത് വേനൽ ക്രിട്ടുത്തോടെ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചെങ്കിലും വൈദ്യുതനിയന്ത്രണം ഏർപ്പെടുത്തില്ലെന്ന് കേരള ഇലക്ട്രിസിറ്റി ബോർഡ് ചെയർമാൻ എൻ

മറിച്ചുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു

കൊയിലാണ്ടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൊടുപുഴ ഇൻട്രോ ക്രൂരമർദ്ദനത്തിനിരയായി കോലഞ്ചേരിയിലെ ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി പ്രതിനിധി ആന്റണി മുനിയറ

എഫ് സ്ഥാനാർത്ഥി എ പ്രദീപ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ഇന്ന് വൈകിട്ട് ആറിന് കോഴിക്കോട് ബീച്ചിൽ നടക്കുന്ന റാലി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും എലത്തൂർ ബേപ്പൂർ കോഴിക്കോട് സൌത്ത് കോഴിക്കോട് നോർത്ത് കുന്നമംഗലം എന്നീ അഞ്ച് നിയമസഭ മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ റാലിയിൽ സംബന്ധിക്കും

ഓരോ് സ്ഥലത്തും യു വി യുടെ തോത് ഉയരുമ്പോൾ വിവരം കളക്ടറേറ്റുകളിൽ നിന്നും ജനങ്ങളെ അറിയിക്കാനാണ് പദ്ധതി ഒരുക്കുന്നതെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോ ശേഖർ കുര്യാക്കോസ് പത്തനംതിട്ടയിൽ പറഞ്ഞു

ബാംഗ്ലൂർ സ്ദേശികളായ സുജേഷ് നിഷ ദമ്പതികളുടെ മകനെയാണ്ട് ്മരിച്ച് നിലയിൽ കണ്ടെത്തിയത്

ഇതിനോടനുബന്ധിച്ച് കലക്ടറേറ്റ് കോമ്പൌണ്ടിൽ ജില്ലാ ശുചിത്വ മിഷൻ പ്രകൃതി സൌഹൃദ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച മാതൃക ഹരിത പോളിംഗ് ബൂത്തിന്റെ ഉദ്ഘാടനം കലക്ടർ ദിനേശൻ ജില്ലാ എച്ച് നിർവ്വഹിച്ചു